ഐക്യത്തോടെ പ്രവർത്തിക്കാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

നേർന്ന് രാഷ്ട്രനേതാക്കളും ഗവർണറും മുഖ്യമന്ത്രിയും

എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ

ആദ്യ മത്സരം പഞ്ചാബും ചെന്നൈയും തമ്മിൽ രണ്ടാം മത്സരത്തിൽ കൊൽക്കത്ത രാജസ്ഥാനെ നേരിടും

ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ആയിരക്കണക്കിന് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു ലോകത്തിന്റെ സമാധാനത്തിനും അഭിവൃദ്ധിക്കും ലോക സമൂഹത്തിന്റെ ഐക്യം ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു

രാജ്യത്തിന്റെ സമാധാനത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കണമെന്ന് ശ്രീ മോദി ജന്ന്ങ്ങളോട് അഭ്യർത്ഥിച്ചു

ആകാശവാണി സംഘടിപ്പിച്ച സർദാർ പട്ടേൽ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു

മഹാമാരിയുടെ സമ്മർദ്ദം സ്വാഭാവികമായും ലോകസമൂഹത്തിലെ ഇടപെടലുകൾക്ക് സവിശേഷമായ പ്രാധാനൃം നൽകുമെന്ന് മന്ത്രി പറഞ്ഞു

ഇന്ത്യ ലോകത്തെ ഫാർമസിയെന്ന ധാരണയെ കോവിഡ് ഉയർത്തിയിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രി പറഞ്ഞു

പാരമ്പര്യമായി നേരിടുന്ന വെല്ലുവിളികളെയും പുതിയ സാഹചര്യങ്ങളെയും ഇരു രാജ്യങ്ങളും അഭിസംബോധന ചെയ്യുന്നതിനാൽ മൂന്ന് പതിറ്റാണ്ടായി ബന്ധം സുസ്ഥിരമാണെന്ന് ഇന്ത്യ ചൈന ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച മന്ത്രി പറഞ്ഞു യഥാർത്ഥ നിയന്ത്രണ രേഖയെ സംബന്ധിച്ചിടത്തോളം ഏകപക്ഷീയമായ സ്ഥിതിഗതികൾ മാറ്റാനുള്ള ശ്രമം അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രി പറഞ്ഞു

അസം ഒഡീഷ ബീഹാർ ഛത്തിസ്ഗഡ് ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ ഹരിയാന ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് കുറഞ്ഞ മരണനിരക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്

ഭാഷയിൽ ഒരുമിച്ച കേരള സംസ്ഥാനത്തിന്റെ ജന്മദിനം വിശദാംശങ്ങളുമായി ജോസ്ന

സംസ്ഥാനത്തിന്റെ സാമ്പത്തികവും തൊഴിൽപരവുമായ പുനരുജ്ജീവനമാണ് ഇതിൽ പ്രധാനം

ടൂറിസം മനുഷ്യവിഭവം ഐ

കേരളത്തിന്റെ വികസനത്തിരും ച്ചുരോഗതിക്കും മാതൃഭാഷ യായ മലയാളത്തിന്റെ പരീപ്പോഷണത്തിനും ഒരുമയോടെ പ്രവർത്തിക്കാമെന്ന് ഗ്ലൂവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളപ്പിറവി സന്ദേശിത്തിൽ പറഞ്ഞു മതനിരപേക്ഷ ജനാധി പത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കേരളപ്പിറവി ദിനാശംസ നേർന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹാനം ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഓരോ സംസ്ഥാനവും കേന്ദ്രഭരണ പ്രദേശവും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും മാതൃകയായിരിക്കട്ടെ എന്ന് രാഷ്ട്രപതി രാം നാഥ് കോവിന്ദ് ടിറ്ററിൽ പറഞ്ഞു ഓരോ സംസ്ഥാനങ്ങളും ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരികവും ഭൂമിശാസ്ത്രപരവുമായ വൈവിധൃത്തെ പ്രതിനിധീകരിക്കുന്നുവെന്ന് ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു പറഞ്ഞു

ട്വിറ്ററിൽ മലയാളത്തിലെഴുതിയ കുറിപ്പിലൂടെയാണ് അദ്ദേഹം ആശംസ നേർന്നത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് എപ്പോഴും ശാശ്വതമായ സംഭാവനകൾ നൽകിയ സംസ്ഥാനമാണ് കേരളമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങളെ ആകർഷിക്കുന്ന പ്രകൃതി ഭംഗി കേരളത്തെ ഏറ്റവും പ്രശസ്തമായ വിനോദ കേന്ദ്രങ്ങളിലൊന്നാക്കുന്നു കേരളത്തിന്റെ തുടർച്ചയായ പുരോഗതിക്കായി പ്രാർത്ഥിക്കുമെന്നും ശ്രീ നരേന്ദ്രമോദി പ്പിക്കുഞ്ഞു

പൊലീസ് സ്ഥാപക ദിന്റ്ട്ഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒട്ൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ പോലീസ് ജില്ലകളിലും സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനുകൾ ഉള്ള ആദ്യ സംസ്ഥാനമായി കേരളം മാറുകയാണ്

പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സംസ്ഥാനത്ത് പ്രചാരണം ശക്തമാക്കി രംഗത്തുണ്ട് കർണാടകയിലെ രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും മറ്റെന്നാൾ നടക്കും

എസ് പ്രവേശന ചട്ടങ്ങൾ സംബന്ധിച്ച് ദേശീയ മെഡിക്കൽ കമ്മീഷൻ പുതിയ വിജ്ഞാപനം പുറത്തിറക്കി കുറഞ്ഞ ചെലവിൽ മെഡിക്കൽ വിദ്യാഭ്യാസം പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നിബന്ധനകൾ

പുതുതായി സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കൽ കോളേജുകൾക്കും ഇത് ബാധകമാണെന്ന് ആരോഗൃ കുടുംബക്ഷേമ മന്ത്രാലയം അറിയിച്ചു

ബി ബി എസ് സീറ്റ് വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന മെഡിക്കുൽ കോളേജുകൾക്കും ഇത് ബാധകമാണ്

പ്രധാന മേഖലകളിലെല്ല്കാം പുരോഗതി കൈവരിച്ചു കൊണ്ട് ആത്മ നിർഭർ ഭാരത് എന്ന ലക്ഷ്യം സാക്ഷാത്ക്കരിക്കാൻ മധ്യപ്രദേശ് ഈടുറ്റ സംഭാവനകൾ നൽകി വരികയാണെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു

കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചായിരിക്കും പ്രവർത്തനമെന്ന് സർക്കാർ അറിയിച്ചു

എൽ ക്രിക്കറ്റിൽ ഇന്ന് രണ്ട് മത്സരങ്ങൾ അബുദാബിയിൽ വൈകിട്ട് മൂന്നരയ്ക്ക് കിങ്സ് ഇലവൻ പഞ്ചാബ് ചെന്നൈ സൂപ്പർ കിങ്സിനെയും ദുബായിൽ രാത്രി ഏഴരയ്ക്ക് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെയും നേരിടും ഇന്നലെ നടന്ന മത്സരങ്ങളിൽ സൺറൈസേഴ്സ് ഹൈദരാബാദും മുംബൈ ഇന്ത്യൻസും വിജയിച്ചു